ഏഴിമല നാവിക അക്കാദമിക്ക് പ്രസിഡൻസ് കളർ അവാർഡ് നാളെ രാവിലെ രാഷ്ട്രപതി സമ്മാനിക്കും

രാജ്യത്ത് കോമി ഏകതാ വാരം ഇന്ന് ആരംഭിക്കും

എഫ് നിയമസഭാ കക്ഷി നേതാക്കൾ ഇന്ന് ശബരിമല സന്ദർശിക്കും

സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിലെ ചാംപ്യൻമാരെ ഇന്നറിയാം

ള്ള ൽ ശ്ര ൽ ശ്ര ൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കണ്ണൂരി ലെത്തും

ഏഴിമല നാവിക അക്കാദമിക്ക് പ്രസിഡൻസ് കളർ അവാർഡ് സർപ്പിക്കുന്നതിനാണ് രാഷ്ട്രപതി എത്തുന്നത് നാളെ രാവിലെ എട്ട് മണിക്ക് നാവിക അക്കാദമി യിൽ നടക്കുന്ന ചടങ്ങിലാണ് അവാർഡ് സമ്മാനിക്കുന്നത് മികച്ച സേവനം പരിഗണിച്ച് ഒരു സൈനിക കേന്ദ്രത്തിന് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് കളർ അവാർഡ് കേഡറ്റുമാരുടെ പരേഡിനും രാഷ്ട്രപതി സാക്ഷ്യം വഹിക്കും

രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കണ്ണൂർ വിമാനത്താവളത്തിൽ സുരക്ഷ കർശനമാക്കി സുരക്ഷ പരിശോധനയുടെ ഭാഗമായി കൊച്ചി നേവൽ ബേസിൽ നിന്ന് രണ്ട് അതിവേഗ ഇന്റർസെപ്റ്റർ ബോട്ടുകൾ ഇന്നലെ കണ്ണൂർ അഴീക്കൽ തുറമുഖത്തെത്തി സിയാച്ചിനിൽ കനത്ത മഞ്ഞു വീഴ്ചയിൽ നാല് സൈനികരുൾപ്പെടെ ആറു പേർ മരിച്ചു പട്രോളിങ്ങിനിടെ ഇന്നലെ ഉച്ചയ്ക്ക് മൂന്നോടെയാണ് മഞ്ഞുവീഴ്ചയു ണ്ടായത് നാല് സൈനികരും രണ്ട് സഹായികളുമാണ് മരിച്ചത് രാജ്യത്ത് കാമി ഏകതാ വാരം ഇന്ന് ആരംഭിക്കും സാമുദായിക സൌഹാർദ്ദവും ദേശീയോദ്ഗ്രഥനവും ശക്തിപ്പെടുത്തുന്നതിനാണ് രാജ്യമെമ്പാടും ദേശീയോ ദ്ഗ്രഥന വാരം ആചരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സെമിനാറുകളും സിമ്പോ സിയങ്ങളും ചർച്ചാ സമ്മേളനങ്ങളും സംഘടിപ്പിക്കും ഗവൺമെന്റ് ഓഫീ സുകളിൽ ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞയെടുക്കും സെക്രട്ടറിയേറ്റ് ദർബാർ ഹാളിൽ രാവിലെ ചീഫ് സെക്രട്ടറി ടോംജോസ് ഉദ്യോഗസ്ഥർക്ക് ദേശീയോദ്ഗ്ര ഥന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും

തിരുവനന്തപുരത്തെ ഇന്ദിരാ ഭവനിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണം രാവിലെ കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും അട്ടപ്പാടിയിൽ നാല് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് സിറ്റിങ് ജഡ്ജി യുടെ നേതൃത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് വി കെ ശ്രീക ണ്ഠൻ ലോക്സഭയിൽ ആവശ്യപ്പെട്ടു ശൂന്യവേളയിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത് തിരുവനന്തപുരത്ത് കടലാക്രമണം തടയുന്നതിന് ശാശ്ചത പരിഹാരം കാണാൻ കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്ന് ഡോ ശശിതരൂർ ലോക്സഭയിൽ ആവശ്യപ്പെ ട്ടു പനത്തുറ പൂന്തുറ വലിയതുറ ശംഖുമുഖം ഭീമാപ്പള്ളി തുടങ്ങിയ പ്രദേശ ങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരന്തരം കടലാക്രമണം നേരിടുകയാ ണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവനും പാർപ്പിടത്തിനും ഇത് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ടെന്ന് ശശിതരൂർ പറഞ്ഞു ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മാണം യാഥാർത്ഥ്യമാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് അടൂർ പ്രകാശ് ലോക്സഭയിൽ ആവശ്യ പ്പെട്ടു ജനങ്ങൾക്ക് മികച്ച സേവനം ഉറപ്പാക്കാനും ഭരണസംവിധാനം മെച്ചപ്പെടുത്താനും മുതിർന്ന മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട് ദീർഘകാലത്തെ അനുഭവം ഉള്ളവരെന്ന നിലയിലാണ് മുഖ്യമന്ത്രി ഇവരുടെ അഭിപ്രായം തേടിയത് പ്രായോഗിക നിർദേശങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

എഫ് നിയമസഭാ കക്ഷി നേതാക്കൾ ഇന്ന് ശബരിമല സന്ദർശിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു മണ്ഡലകാലം തുടങ്ങി യിട്ടും തീർത്ഥാടകർ നിരവധി അസൌകര്യങ്ങൾ നേരിടുന്നുവെന്ന് പരാതി വ്യാപ കമായ സാഹചര്യത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സംഘം ശബരിമല സന്ദർശിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്ത പുരത്ത് പറഞ്ഞു

സുപ്രീം കോടതി വിധി ഭരണഘടനക്ക് മുകളിൽ വിശ്വാസത്തെ പ്രതിഷ്ഠിക്കാൻ നട ത്തുന്ന ശ്രമമായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ടെന്നും യോഗം അഭിപ്രായ പ്പെട്ടു അയോധ്യ ഭൂമി തർക്കത്തിൽ സുപ്രീംകോടതി വിധിയിൽ നീതി നടപ്പായില്ലെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു വസ്തുത കൾക്കല്ല വിശ്വാസത്തിനാണ് വിധിയിൽ മുൻതൂക്കം ലഭിച്ചതെന്ന് ന്യൂഡൽഹി യിൽ പാർട്ടി പൊളിറ്റ് ബ്യൂറോ തീരുമാനം വിശദീകരിക്കവെ അദ്ദേഹം അഭി പ്രായപ്പെട്ടു കാശിയും മഥുരയും ഉൾപ്പെടെ ഭാവിയിൽ ഇത്തരം തർക്കങ്ങൾ ഉയർന്നു വരുന്നതിന് സാധ്യതകൾ ഇല്ലാതാക്കാൻ കോടതി തയാറായില്ലെന്നും യെച്ചൂരി പറഞ്ഞു

എ സംബന്ധിച്ച് സിപിഐഎം പൊളിറ്റ്ബ്യൂറോയിൽ തനിക്കെതിരെ വിമർശനം ഉണ്ടായില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവകാശവാദം അവിശ്വസനീയമാണെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു

എ സംബന്ധിച്ച് പൊളിറ്റ് ബ്യൂറോ നിലപാട് വൃക്തമാക്ക ണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു മദ്റാസ് ഐഐടി വിദ്യാർത്ഥിനി ഫാത്തിമാ ലത്തീഫിന്റെ മരണവുമായി ബന്ധ പ്പെട്ട് മൂന്ന് അധ്യാപകരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു

മരണത്തിൽ ആഭ്യന്തര അന്വേഷണം ആവശ്യപ്പെട്ട് രണ്ട് ഐ

ടി വിദ്യാർഥികൾ അനി ശ്ചിതകാല നിരാഹാരം തുടരുകയാണ്

വനിതാ കമ്മീഷൻ അംഗങ്ങ ളായ ഡോ ഷാഹിദാ കമാൽ എം എസ് താര എന്നിവർ ഫാത്തിമയുടെ കൊല്ലത്തെ വീട് സന്ദർശിച്ച് ബന്ധുക്കളുമായി സംസാരിച്ചു മറ്റൊരു സംസ്ഥാ നത്ത് നടന്ന സംഭവമായതിനാൽ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് വനിതാ കമ്മിഷൻ നടപടികൾ കൈകൊള്ളുമെന്നും അവർ അറിയിച്ചു കണ്ണൂരിൽ നടക്കുന്ന അറുപത്തി മൂന്നാമത് സംസ്ഥാന സ് കൂൾ കായികോത്സവത്തിലെ ചാംപ്യൻമാരെ ഇന്നറിയാം

ആൺകുട്ടികളുടെ ആറ് കിലോമീറ്റർ ക്രോസ് കൺട്രിയും പെൺകുട്ടികളുടെ നാല് കിലോ മീറ്റർ കോസ് കൺട്രിയും അൽപം മുമ്പ് തുടങ്ങി അധ്യാപകരുടെ നടത്ത മത്സരം അൽപ സമയത്തിനകം ആരംഭിക്കും

എച്ച്

വൈകുന്നേരം നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിജയികൾക്ക് ട്രോഫി സമ്മാനിക്കും സംസ്ഥാനത്ത് ഈ വർഷം രണ്ട് സ്പോർട്സ് സ്കൂളുകൾ സ്ഥാപിക്കുമെന്നും മലപ്പുറത്ത് ഫുട്ബാൾ അക്കാദമി ആരംഭിക്കുമെന്നും മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു കോഴിക്കോട് നടുവണ്ണൂർ വോളി അക്കാദമി നിർമാണോദ്ഘാനവും മേപ്പയൂർ ഹയർസെക്കൻ്ററി സ്കൂളിൽ സ്പോർട്സ് ഫെസിലിറ്റി സെന്ററിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കായിക വിദ്യാർഥികൾക്ക് ഭക്ഷണം കൊടുക്കാൻ സ്കൂൾ അക്കൌണ്ടിലേക്ക് നൽകിയിരുന്ന തുക അടുത്ത വർഷം ജനുവരി മുതൽ കുട്ടികളുടെ അക്കൌണ്ടിലേക്ക് നൽകുമെന്നും മന്ത്രി അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്തവങ്ങൾ ഇന്ന് ആരംഭി ക്കും കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവും

പരമ്പരയിൽ സമ്പൂർണ്ണ വിജയമാണ് ഇന്ത്യയുടേത് സംസ്ഥാനത്തെ അൺ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്കും പ്രസവാനു കൂലൃങ്ങൾ ബാധകമാക്കി വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കുമെന്ന് മന്ത്രി ടി

അതിഥി തൊഴിലാളികൾക്കായി ആരംഭിച്ച സൌജന്യസഹായ കേന്ദ്രമായ ശ്രമിക് ബന്ധു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എല്ലാ ജില്ലകളിലും സഹായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു

മന്ത്രി എ സി മൊയ്തീൻ വിളിച്ചു ചേർത്ത അമൃത് പദ്ധതിയുടെ അവലോകന യോഗ റിപ്പോർട്ട് കൌൺസിലിൽ അവതരി പ്പിച്ചു

കൊച്ചി മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുമ്പോൾ പ്രദേശവാസികളുടെ സുരക്ഷ ഉറ പ്പാക്കുമെന്ന് അധികൃതർ വൃക്തമാക്കി നിലവിലെ സ്ഥിതി വിലയിരുത്തുന്ന തിനായി മന്ത്രി എ

പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകു ന്നതിന് ഇൻഷുറൻസ് ഉൾപ്പെടെ നടപടി സ്വീകരിക്കും സംസ്ഥാനത്തെ ശുചീകരണ തൊഴിലാളികളുടെ സേവന ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശകലനം നടത്തുമെന്ന് സഹായി കർമ്മചാരി കമ്മീഷൻ ചെയർമാൻ മൻഹർ വാൽജി ഭായിസാല കൊച്ചിയിൽ പറഞ്ഞു വിവിധ ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുന്നതിനായി ബോധവത്ക രണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

ഇ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയ വിസ ഓൺ അറൈവൽ സമ്പ്രദായം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും നടപ്പാക്കണമെന്ന് എം കെ രാഘവൻ എം പി വിദേശകാര്യ മന്ത്രി എസ് ജയ്ശങ്കറിന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു മലബാറിന്റെ വ്യാപാര വാണിജ്യ വിനോദ സഞ്ചാര മേഖലക്ക് അതൊരു മുതൽകൂട്ടാകുമെന്നും പൊതുമേഖല സ്ഥാപനമെന്ന നിലയിൽ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുത്തനുണർവേകുമെന്നും എം പി പറഞ്ഞു ദേശീയ നഗര ഉപജീവന ദൌത്യത്തിന്റെ ഭാഗമായി കൊല്ലം കോർപ്പറേഷൻ നിർമാണം പൂർത്തിയാക്കിയ വൃദ്ധ സദനത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി കെ കെ ശൈലജ നിർവഹിക്കും ഭവനരഹിതരിൽ അശരണരും നിർധനരുമായ വൃദ്ധജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് ആധുനിക രീതിയിലാണ് നിർമ്മാ ണം സംസ്ഥാനത്ത് ദേശീയപാത കടന്നു പോകുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ സ്ത്രീ സൌഹൃദ പൊതു ശൌചാലയങ്ങൾ നിർമിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ നിർദേശിച്ചു ആവശ്യത്തിന് ശൌചാലയങ്ങളില്ലാത്തത് സ്ത്രീകൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുമെന്നും ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപെടുത്തിയിട്ടുണ്ടെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എം സി ജോസഫൈൻ തൃശൂരിൽ പറഞ്ഞു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് സംസ്ഥാന ഗവൺമെന്റ കൊണ്ടുവന്ന ബയോമെട്രിക് പെൻഷൻ മസ്റ്ററിംഗ് സംവിധാനം പെൻഷൻ വാങ്ങുന്ന വൃദ്ധർക്കും കിടപ്പിലായ രോഗികൾക്കുമെതിരായ വെല്ലുവിളിയാണെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ കോഴിക്കോട് പറഞ്ഞു ഗവൺമെന്റ് ഈ വിഷയത്തിൽ പുനപരിശോധന നടത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഊർജ്ജ സംരക്ഷണ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ അക്ഷയ ഊർജ്ജ പുരസ്കാരം രാജകുമാരി ഗവ വൊക്കേഷണൽ ഹയർ സെക്കണ്ടറി സ്കൂളിന് ലഭിച്ചു ഇടുക്കി ജില്ലയിലെ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിനെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഊർജ്ജ സംരക്ഷണ പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി നടത്തിയ ഗ്രാമ വെളിച്ചം പദ്ധതിക്കാണ് അവാർഡ് ലഭിച്ചത്